അമ്മമാരുടെയും നവജാതശിശുക്കളുടെയും ആരോഗ്യം ഉറപ്പ് വരുത്തണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ഷൂത്തീസ്ഗഡിൽ വോട്ടെടുപ്പ് രണ്ട് ഘട്ടങ്ങളില്ലായി

കേരളം അതീവ ജാഗ്രതയിൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത

രാജ്കോട്ടിൽ വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം

ആരോഗൃമുള്ള ഒരു കുടുംബം ആരോഗൃമുള്ള ഒരു രാജ്യത്തിന്റെ സൃഷ്ടിക്ക് നിർണ്ണായകമാണ് സ്ത്രീകളുടെ ആരോഗ്യം അഭിവൃദ്ധി ശാക്തീകരണം എന്നിവയെ സംബന്ധിച്ച് കാൺപൂരിൽ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി രാജ്യത്ത് പെൺകുഞ്ഞുങ്ങൾ ആൺകുട്ടികളെ അപേക്ഷിച്ച് ധാരാളം വിലക്കുകളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ആൺകുട്ടികളും ഏറെ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അറിവ് നൽകുകയാണ് പ്രധാനം

രാജ്യം സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു

കറന്റ് അക്കൌണ്ട് കമ്മി നിക്ത്ത്രിനുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊണ്ടു വരികയുള്ളണുന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു അടുത്ത രണ്ട് ദ്ശകങ്ങളിൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയുടെ അനന്തമായ സാധ്യതയാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ധനവില വർദ്ധനവിനെ തുടർന്നുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ശക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

രാജസ്ഥാനിലെ അജ്മീറിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം പാർട്ടികൾ ഉദ്യോഗസ്ഥ സമൂഹത്തെ വിഭജിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ജനാധിപത്യത്തിൽ ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ്

ഇപ്പോൾ പ്രതിപക്ഷമായും അവർ പരാജയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സർജിക്കൽ സ്ട്രൈക്കിനെ ചോദ്യം ചെയ്യുക വഴി പ്രതിപക്ഷം സൈനികരെയാണ് അപമാനിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണങ്കിലും താൻ ബി

പി പ്രവർത്തകനാണെന്ന് വിശേഷിപ്പിച്ച ശ്രീ മോദി അതുകൊണ്ട് തന്നെ ബൂത്ത് തല യോഗത്തിൽ ക്ഷണിക്കുകയാണെങ്കിൽ പോലും സന്നിഹിതനാവുമെന്ന് പറഞ്ഞു രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധരാ രാജയുടെ സംസ്ഥാന രാഷ്ട്രീയ യാത്രയുടെ സമാപനം കുറിച്ചുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി

മധ്യപ്രദ്ദേശ്ച് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മിസോറാം തെലുങ്കാന എന്നീ സംസ്മാനങ്ങളാണ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ആഗോള തീവ്രവാദത്തെ അപലപിച്ച ഇരുരാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇരട്ട നിലപാട് സ്വീകരിക്കരുതെന്നും തീരുമാനിച്ചു ഭീകരവാദികൾക്ക് സഹായം നൽകുന്ന രാജ്യങ്ങളുടെ നിലപാടിനേയും ഇരുരാജ്യങ്ങളും അപലപിച്ചു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന് പല രാജ്യങ്ങളും ഒത്താശ ചെയ്യുന്നുണ്ടെന്നും വിലയിരുത്തി തീവ്രവാദത്തെ തടയുന്നതിന് യു എൻ മുന്നോട്ടുവച്ച സമീപനരേഖ അംഗീകരിക്കാനും തീരുമാനമായി ഇന്ത്യയുടെ പുരോഗതിയിൽ റഷ്യ ഏറ്റവും പ്രധാന പങ്കാളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയും റഷ്യയും വ്യാവസായിക സഹകരണത്തിൽ ഇനിയും മുന്നേറാനുണ്ടെന്ന് മറുപടി പ്രസംഗത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു

പകരം ശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് അലർട്ട് നൽകി ശ്രീല്ലങ്കയ്ക്കു പടിഞ്ഞാറ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പ്പൂട്ടിക്കുപ്പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നതായാണു വിവരം വയനാട്ടിലും പത്തനംതിട്ടയിലും നാളെയും പാലക്കാട്ട് മറ്റന്നാശ്ശ് വിശ്രയും ഓറഞ്ച് അലർട്ട് തുടരും കണ്ണൂരിലും കോഴിക്കോട്ടും ഒ്ട്രൂപ്പതു വരെ യെല്ലോ അലർട്ടും തുടരും അനിഷ്ട സംഭവ്വങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിനായിീ ദുരന്ത നിവാരണ സേനയുടെ അഞ്ച് സംഘത്തെ വയനാട് കോഴിക്കോട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്

സാമൂഹൃ സാമ്പത്തിക ജാതി സെൻസസിൽ അധസ്ഥിത ദരിദ്ര വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത ചില പേരുകൾ ഗുണഭോക്താക്കൾക്കിടയിൽ കണ്ടെത്തിയതായി ആരോപണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് നിർദ്ദേശം പ്രതിമാസം പതിനായിരത്തിൽ കൂടുതൽ രൂപ വരുമാനമുള്ളതും ആദായനികുതി അടയ്ക്കുന്നതും ലാൻഡ് ലൈൻ ഫോണും ഫ്രിഡ്ജും ഒക്കെയുള്ളവരെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്നും എൻ എച്ച്

നിർദ്ദേശിച്ചു

അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ചില വിവരങ്ങൾ പുറത്തുവന്നത് ശരിയല്ലെന്ന് പാർട്ടി വക്താവ് അറിയിച്ചു

ജിതേന്ദ്ര സിംഗ് ആവശ്യപ്പെട്ടു ഉദ്ദംപൂരിൽ തെരഞ്ഞടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുന്നതോടെ തദ്ദേശസഭകളിലെ പ്രതിനിധികൾക്കായിരിക്കും വികസന ചുമതല ആ നിലയ്ക്ക് സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഈ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണെന്നും ഭയം കൂടാതെ വോട്ടു രേഖപ്പെടുത്താനും അദ്ദേഹം പറഞ്ഞു

തൌസീഫ് ഗനൈ എന്ന വ്യക്തിയുടെ കഴുത്ത് മുറിഞ്ഞ നിലയിലുള്ള മൃതദേഹമാണ് ഹർവാൻ ഗ്രാമത്തിലെ തോട്ടത്തിൽ നിന്നും കണ്ടെടുത്തതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ബുധനാഴ്ച ഹന്ദുവാരയിലെ ഉനീസു ഗ്രാമത്തിലുള്ള കടയിൽ നിന്നും അജ്ഞാതർ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു സോപ്പോറിൽ ഇത്തരത്തിലെ രണ്ടാമത്തെ സംഭവമാണിത്